ഡി

മരട് ഫ്ളാറ്റ് മരട് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ സാങ്കേതിക സമിതി നാളെ യോഗം ചേരും

ജനവാസം കുറഞ്ഞ സ്ഥലത്തെ ഫ്ളാറ്റുകൾ പൊളിച്ച് പ്രത്യാഘാതം പഠിച്ച ശേഷമായിരിക്കും മറ്റ് ഫ്ളാറ്റുകൾ പൊളിക്കുക ഇന്നലെ മന്ത്രി എ

മൊയ്തീനെ കണ്ട് സമീപത്തെ ഫ്ളാറ്റ് ഉടമകൾ ആശങ്കകൾ പങ്കു വച്ചിരുന്നു അതിനിടെ ഫ്ളാറ്റുകൾക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന ഐഒസിയുടെ ഇന്ധന പൈപ്പ് ലൈനുകൾ സുരക്ഷിതമാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്